ഇടക്കാല സംരക്ഷണം ആവശൃപ്പെട്ട് മുൻകേന്ദ്രമന്ത്രി പി ചിദംബരം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി

ചന്ദ്രനിലേക്കുള്ള യാത്രയിലെ സുപ്രധാനഘട്ടമെന്ന് പ്രെയ്ന്നമന്ത്രി നരേന്ദ്രമോദി

ചിദംബരം ഉൾപ്പെട്ട ഐ

എക്സ് മീഡിയ കേസെന്നും മെച്ചപ്പെട്ട അന്വേഷണത്തിന് ശ്രീ ചിദംബരത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണെന്നും ഡൽഹി ഹൈക്കോടതി ശ്രീ ചിദംബരം സമർപ്പിച്ച മൂൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ച ഡൽഹി ഹൈക്കോടതി ഇത്തരം സന്ദർഭങ്ങളിൽ ജാമ്യം അനുവദിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ചൂണ്ടിക്കാട്ടി അന്വേഷണ കാലയളവിൽ ഏജൻസിയുടെ ചോദ്യങ്ങളോട് ശ്രീ

കേസിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനിട്ടെയുള്ള് അറസ്റ്റിൽ നിന്ന് ഇടക്കാല സംരക്ഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയും ഹൈക്കോടതി തള്ളി അതേസമയം ഡ്ൽഹ് ഹൈക്കോടതി അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് അടൂർത്ത് സ്വീകരിക്കാനുള്ള നടപടികളെ സംബന്ധിച്ച് ശ്രീ ചിദംബ്രെട് മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ അഭിഷേക് മ്നു സിങ്വി സൽമാൻ ഖുർഷിത് എന്നിവരുമായി ചർച്ച നട്ത്തി

മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ അനന്തരവനാണ് രതുൽ പുരി

അന്വേഷണത്തോട് ശ്രീ പുരി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന്റെ നടപടികൾ പ്രത്യേക ലക്ഷ്യം വച്ചുള്ളതാണെന്നും പുരിയുടെ അഭിഭാഷകൻ അഭിഷേക് മനു സിങ്വി ആരോപിച്ചു എന്നാൽ അന്വേഷണത്തിനിടെ ഏജൻസിയുടെ ചോദ്യങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടികളാണ് ശ്രീ പുരി നൽകിയതെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അമൻ ലേഖി കോടതിയെ അറിയിച്ചു

പുരിക്കെതിരെ വിചാരണ കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു അതിനിടെ മറ്റൊരു ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രറ്റ് ശ്രീ പുരിയെ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു

എസ് ആർ ഒ

വിശദാംശങ്ങളുമായി സുപ്രഭ്

എസ് ആർ ഒ

ഇതിനുമുമ്പുള്ള എല്ലാ പദ്ധതികളും ചന്ദ്രന്റെ മധ്യഭാഗത്താണ് ഇറങ്ങിയിട്ടുള്ളത്

മീ

ന്യൂസ്ഡസ്ക് ആകാശവാണി

മെൻതാർ മേഖലയിലുായ വെടിവെയ്പ്പിൽ നായിക് രവിരഞ്ജൻ കുമാർസിംഗ് വീരമൃത്യു വരിച്ചതായി ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യൻ സേനയും ശ്രക്ത്മായി പ്രതിരോധിച്ചു പാക്സേനയിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടു് ആർമി പോസ്റ്റുകളും തകർന്നിട്ടു് വീരമൃത്യൂ വ്രിച്ച രവിരഞ്ജൻ ബീഹാർ സ്വദേശിയാണ്

സായുധ സേനകളുടെ പ്രവർത്തനക്ഷമത ഉയർത്താനും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണവും തദ്ദേശീയവൽക്കരണ പദ്ധതികളും എന്ന വിഷയത്തെ കുറിച്ചുള്ള സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിരോധ നിർമ്മാണ രംഗത്ത് നിക്ഷേപം നടത്താൻ അദ്ദേഹം വിദേശ കമ്പനികളെ ക്ഷണിച്ചു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ സ്വകാരൃമേഖലയെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും ശ്രീ രാജ്നാഥ്സിംഗ് അറിയിച്ചു

ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ അസം മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അസം ചീഫ് സെക്രട്ടറി തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു വിഷയത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ആഭ്യന്തരമന്ത്രാലയം അസം ഗവൺമെന്റുമായി വിപുലമായ ചർച്ചകൾ നടത്തിയിരുന്നു

ശ്രീരാമുലു ഗോവിന്ദ് കാരജോൾ സീ

അശ്വന്ത് നാരായൺ കെ

ഈശ്വരപ്പ ജഗദ്വീഷ് ഷെട്ടാർ ആർ

ജയശങ്കർ ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഡോ

കൂടുതൽ വിവരങ്ങളുമായി സുപ്രഭ

തീവ്രവാദം കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നതിലൂടെ ഇന്ത്യ ബംഗ്ലാദേശ് സഹകരണം കൂടുതൽ മെച്ചപ്പെടുമെന്നും ശ്രീ

ഈ മേഖലകളിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധിക്കുമെന്നും ഇരുരാജ്യങ്ങൾക്കിടയിലെ നദീജലം പങ്കവയ്ക്കുന്നതിൽ പൊതുവായി അംഗീകരിക്കപ്പെടുന്ന ഒരു ഫോർമുല തയ്യാറാക്കാൻ രാജ്യം ആഗ്രഹിക്കുന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി റോഹിൻഗ്യ അഭയാർത്ഥികളുടെ വിഷയത്തിൽ അവരുടെ സുരക്ഷിതവും വേഗത്തിലുമുള്ളതുമായ തിരിച്ചു പോക്ക് ഉറപ്പാക്കുന്നതും മൂന്നു രാജ്യങ്ങളൂട്ടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായ നടപടിയാണ്ട് ഇന്ത്യ് ആഗ്രഹിക്കുന്നതെന്നും ശ്രീ

പ്രധാന്യമൃന്തി നരേന്ദ്രമോദിയുടെയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ക്ക് ഹസീനയുടെയും കീഴിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിന്റെ ബന്ധം സുവർണകാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും അദ്ദേഹം നിരീക്ഷിച്ചു

അഞ്ച് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് തുടർച്ചയായ മൂന്നാം ദിവസവും രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കുകയാണ്

നിലവിലെ സ്ഥിതിഗതികളും രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വിലയിരുത്തിയ ക്യാബിനെറ്റ് സെക്രട്ടറി പി

സിൻഹ സംസ്ഥാനങ്ങൾക്ക് അടിയന്തര സഹായത്തിന് നിർദ്ദേശം നല്കി

ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അധ്യക്ഷനായ ഉന്നതതല യോഗത്തിലാണ് തീരൂമാൻ കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ നരേന്ദ്രി പ്സീംഗ് തോമർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു

മേഘാലയയിൽ തുടങ്ങാനിരിക്കുന്ന പന്നി വളർത്തൽ വികസന പദ്ധതിയായിരുന്നു ചർച്ചയിലെ മുഖ്യ വിഷയമെന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വടക്ക് കിഴക്കൻ മേഖലയിലാകെ ഇറച്ചിയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് നിർദ്ദിഷ്ട പദ്ധതി സാധ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി

സ്ട്രൈക്കർ മന്ദീപ് സിംഗിന്റെ ഹാട്രിക് ഗോളുകളാണ് ഇന്തൃയ്ക്ക് തകർപ്പൻ ജയം സമ്മാനിച്ചത്